രാഷ്ട്രസംഘടന ജനീവയിൽ സംഘടിപ്പിക്കുന്ന ലോക പുന്റർനിർമ്മാണ സമ്മേ ളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും

സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടി ശക്തമാക്കി പ്രമുഖ നിയമപണ്ഡിതൻ ഡോക്ടർ എൻ

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് യൂറോപ്പിലേക്ക് യാത്ര തിരിക്കും ഐക്യരാഷ്ട്ര സംഘടന ജനീവയിൽ സംഘടിപ്പിക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനം ഉൾപ്പെടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് യാത്ര നാലു രാഷ്ട്രങ്ങളിലായി മുഖ്യമന്ത്രി നടത്തുന്ന യൂറോപ്യൻ പര്യ ടനം നെതർലാൻഡ്സ് സന്ദർശനത്തോടെയാണ് ആരംഭിക്കുന്നത് വെള്ളപ്പൊക്കം ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ നടപ്പാക്കുന്ന മാതൃകകൾ മനസ്സി ലാക്കുന്നതിനാണ് നെതർലാൻഡ് സന്ദർശനം ജലമാനേജ്മെന്റ് വെള്ളപ്പൊക്ക നിയന്ത്രണം കൃഷി തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണ സാധൃതകൾ മുഖ്യമന്ത്രി ചർച്ച ചെയ്യും കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കു ന്നതിന് സ്വിസ് സംരംഭകരുമായി അദ്ദേഹം ചർച്ച നടത്തും

തിങ്കളാഴ്ച യു എൻ പുനർനിർമ്മാണ സമ്മേളനത്തിൽ മുഖ്യപ്രസംഗകരിൽ ഒരാളാണ് മുഖ്യമന്ത്രി

കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെകുറിച്ച് ലണ്ടനിലെ മാധ്യ മപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കും

ഇയുടെ പ്രവാസി ചിട്ടിയിൽ ബ്രിട്ടനിലെ മലയാളികളെ പങ്കാളികളാക്കുന്ന ചടങ്ങും ലണ്ടനിൽ സംഘ ടിപ്പിക്കുന്നുണ്ട്

ഓരോ നിയമസഭാ മണ്ഡലത്തിലും കൂടുതൽ വി വി പാറ്റുകൾ എണ്ണണ മെന്ന ആവശ്യവും അവർ ആവർത്തിച്ചു

രാജ തുടങ്ങിയ നേതാക്കൾ തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചത് എത്രയും വേഗം ഇതു സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം വോട്ടെണ്ണുന്ന സമയത്ത് വ്യത്യാസം കണ്ടെത്തിയാൽ അതേകുറിച്ച് അമ്പേഷിക്കണമെന്നും വെബ്സൈറ്റിൽ ഇക്കാര്യം പ്രസിദ്ധീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കൂടുതൽ വി വി പാറ്റു കൾ എണ്ണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്ന് അഭിഷേക് സിംഗ്വി പിന്നീട് വാർത്താലേഖകരെ അറിയിച്ചു ആദിവാസികളെ വകവരുത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി സമർപ്പിക്കുന്നതിന് കോൺഗ്രസ് അധ്യ ക്ഷൻ രാഹുൽ ഗാന്ധി കൂടുതൽ സമയം ആവശ്യപ്പെട്ടു മറുപടി നൽകാൻ കമ്മീ ഷൻ അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ്ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീ സർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി പ്രസംഗത്തിന്റെ ഓഡിയോയും വീഡിയോയും ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രഥമദൃഷ്ട്യാ പെരുമാറ്റചട്ടലംഘനം കണ്ടെത്താനായില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു

് ് ് ് ് ് കണ്ണൂരിലെ കള്ളവോട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് ബി എൽ ഒ മാരിൽ നിന്ന് ജില്ലാ കലക്ടർ തെളിവെടുത്തു ധർമ്മടം മണ്ഡലത്തിലെ ചില ബൂത്തുക ളിലെ ബി എൽ ഒ മാരിൽ നിന്നാണ് തെളിവെടുത്തത് ആരോപണവിധേയ രായവരിൽ നിന്നും മൊഴിയെടുത്തു ് ് ് ് ് ് കണ്ണൂർ ജില്ലയിലെ കള്ളവോട്ടിനെതിരെ നിയമ പോരാട്ടം നടത്താൻ കോൺഗ്രസ് ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതു സംബന്ധിച്ച് കൂടുതൽ പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്

ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ ഫലം ലഭി ക്കും

ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും പി ആർ ഡി ലൈവ് ഡൌൺലോഡ് ചെയ്യാം ് ് ് ് ് ് ് ് റേഷൻ കാർഡ് മുൻഗണനാപട്ടികയിൽ അനർഹമായി കടന്നുകൂടിയ വരെ ഒഴിവാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടി ശക്തമാക്കി ഇത്തര ക്കാർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കാൻ സിവിൽ സപ്ലൈസ് ഡയറക്ട റേറ്റ് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകി നിയമനടപടിക്കൊപ്പം അനർഹ മായി വാങ്ങിയ റേഷൻ വിഹിതത്തിന്റെ കമ്പോളവില അവരിൽ നിന്നും ഈടാ ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ് ് ് ് ് ് ് ് റേഷൻ കാർഡിലെ മുൻഗണന മുൻഗണനേതര പരിധി നിശ്ചയിക്കുന്നതിൽ കാലാനുസൃതമായി പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടു വരേണ്ടതുണ്ടെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു തിരൂർ റസ്റ്റ് ഹൌസിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യാ വകാശ കമ്മീഷൻ സിറ്റിങ്ങിൽ മലപ്പുറം സ്വദേശിനി സൈനബയുടെ പരാതി പരിഗണിക്കവെയാണ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മാനദണ്ഡങ്ങൾ മാറേണ്ടതുണ്ടെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചത്

സോഷ്യൽ മീഡിയ സൈറ്റായ ഇൻസ്റ്റഗ്രാമിൽ ന തന്റെ മോർഫ് ചെയ്ത ചിത്രം ഉപയോഗിച്ച് വ്യാജ അക്കൌണ്ടും അശ്ലീല ചിത്രങ്ങളും പ്രചരിപ്പിച്ചുവെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടു

പ്രമുഖ നിയമപണ്ഡിതൻ ഡോക്ടർ എൻ

രാത്രി പന്ത്രണ്ടരയോടെ തിരുവനന്തപുരത്ത് സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

രാജ്യത്തെ ആധുനിക നിയമ വിദ്യാ ഭ്യാസത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന മാധവമേനോൻ കൊൽക്കത്തയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സയൻ സസിന്റെ വൈസ് ചാൻസ ലറായും ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ആദ്യ ഡയറക്ട റായും പ്രവർത്തിച്ചു

നിയമവു മായി ബന്ധപ്പെട്ട് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്

ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ആറ് വിക്കറ്റിന് തോല്പിച്ചാണ് മുംബൈ ഫൈനലിൽ കടന്നത് ഇന്ന് എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരബാദും ഡൽഹി ക്യാപി റ്റൽസും ഏറ്റുമുട്ടും ഈ മത്സരത്തിലെ വിജയികളുമായാണ് ചെന്നൈയുടെ അടുത്ത മത്സരം അത് ജയിച്ചാൽ ചെന്നൈയ്ക്ക് ഫൈനലിൽ എത്താം

സി അൽകാപുര എഫ് സിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപിച്ചു ഗോകു ലത്തിന്റെ രണ്ടാം ജയമാണിത്

ഓച്ചിറ സ്വദേശി ഫൈസലിനെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തു നെടുമ്പാ ശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് നേരിട്ട് ഹാജരാവാൻ എൻ ഐ എ ഫൈസലിന് നോട്ടീസ് നൽകിയിരുന്നു തുടർന്ന് ഖത്ത റിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു കസ്റ്റഡിയിൽ എടുത്തത് കേസിൽ ഫൈസൽ ഉൾപ്പെടെ മൂന്നുപേരെ എൻ ഐ എ പ്രതി ചേർത്തിട്ടുണ്ട്

രം മധുര അമൃത എക്സ്പ്രസും നാളെ സ്വതന്ത്ര ട്രെയിനുകളായി സർവീസ് തുട ങ്ങും

ഹജജ് തീർഥാടകരുടെ പുറപ്പെടലി നായി ഉപയോഗിക്കാൻ വിവിധ ഏജൻസികളുടെ യോഗം തീരുമാനിച്ചു തീർഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിന ് വിമാനത്താവളത്തിൽ പരമാവധി സൌകര്യങ്ങൾ ഒരുക്കും

സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജിന് പോകുന്ന തീർഥാടകർക്കായി കരിപ്പൂരിലും നെടുമ്പാശേരിയിലും എംബാർക്കേഷൻ പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്

ഇറങ്ങിയ കടുവയെ പിടികൂടാൻ തിരച്ചിൽ തുടരുകയാണ് ഇന്നലെയാണ് പ്രദേ ശത്തെ കൃഷിയിടത്തിൽ കടുവ ഇറങ്ങിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടു കാരും തിരച്ചിൽ ഊർജ്ജിതമാക്കി അപായസൂചന കണക്കിലെടുത്ത് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പാറക്കടവ് വണ്ടിക്കടവ് പ്രദേശങ്ങളിൽ ജില്ലാക ലക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു

മി വേഗത്തിൽ കാറ്റും ട ഉണ്ടാവാൻ സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് പ്രളയത്തിൽ വീടു പൂർണമായും ഭാഗികമായും തകർന്നവർക്ക് ധനസഹായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ താലുക്ക് വില്ലേജ് ഉദ്യോഗസ്ഥർക്കു നിർദേശം നൽകി ഇടുക്കി താലൂക്കിലെ പ്രളയ പുനർനിർമാണ സാമ്പത്തിക സഹായ നടപടികൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ബൈപ്പാസിൽ കേന്ദ്രീകൃത ശുചീകരണം നടത്തും ജനങ്ങളുടെയും സന്നദ്ധ സംഘ ടനകളുടെയും സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തുക് പൊതുസ്ഥല ങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും കോഴി ക്കോട് കോർപറേഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു പത്തനംതിട്ട ജില്ലയിലെ നദികളിൽ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നു

കഴിഞ്ഞ ഓഗസ്റ്റി ലുണ്ടായ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മണലും ആളുകളുടെ ജാഗ്രതക്കുറവു മാണ് മുങ്ങിമരണം കൂടാൻ കാരണമെന്ന് ദുരന്തനിവാരണ വിഭാഗം വിലയിരുത്തു ന്നു

പാലക്കാട് നഗരത്തിലെ മാലിന്യപ്രശ്നം പരിഹരി ക്കുന്നതിന് തിരക്കേറിയ ഇടങ്ങളിൽ ബയോബിന്നുകൾ സ്ഥാപിക്കും

ബിന്നുകളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപി ക്കുന്നത് നിരീക്ഷിക്കാൻ ഹരിതകർമ സേനയെ നിയമിക്കും

തൃശൂരിലേക്ക് ഇന്ന് കെ

സി ചെയിൻ സർവീസ് ആരംഭിക്കും വടക്കൻ മേഖലയിലെ യാത്രാക്ലേശം പരിഹരി ക്കുന്നതിന് ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് സർവീസുകൾ ആരംഭിക്കുന്നത്

സരമൊരുക്കി കാസർക്കോട്ട് അവധിക്കാല ശില്പശാലകൾക്ക് തുടക്കമായി